വാർത്തകൾ വിശദമായി തിരിച്ചു വരുന്ന പ്രവാസികളുടെ പുനരധിവാസവും സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനവും ലക്ഷ്യമിട്ട് ഡ്രീം കേരള പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു തിരിച്ചു വരുന്നവരിൽ വലിയ വിഭാഗം പ്രൊഫഷണലുകളാണെന്നും അന്താരാഷ്ട്ര നേടിയവരും വൈദഗ്ദ്യം സംരംഭങ്ങൾ നടത്തി പരിചയമുള്ളവരുമാണ് ഇവരെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ഇവരുടെ കഴിവ് സംസ്ഥാനത്തിന്റെ ഭാവിക്കു വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യംകൂടി പദ്ധതിക്ക് ഉണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി വോയ്സ് രുമ തൊഴിൽ നഷ്ടപ്പെട്ട് കൂടുതൽ പേർ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം ഗവൺമെന്റ് ഗൌരവമായി വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രീംകേരള പദ്ധതി ആരംഭിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു യുവ സമൂഹത്തിന് ദിശാബോധം നൽകാനും അവരെ ഭാവി നേതാക്കൻമാരായി വളർത്തിയെടുക്കാനും ലക്ഷ്യമിട്ട് യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി സ്ഥാപിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു കോവിഡ് രോഗികളുടെ എണ്ണം വർധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വാർഡുതല സമിതികളുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു ജോലിക്കു പോകാത്ത ഗവൺമെന്റ് ജീവനക്കാരും അധ്യാപകരും കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമാകണം രോഗബാധിതരുടെ എണ്ണം കൂടുന്നതിനാൽ സമൂഹ വ്യാപന ആശങ്കയിൽ നിന്ന് നാം മുക്തരായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ പൊന്നാനി താലൂക്കിൽ പൊലീസ് കർശന ജാഗ്രത പുലർത്തുന്നുണ്ട് പച്ചക്കറികൾ ഉൾപ്പെടെ അഞ്ച് കടകൾക്ക് വീതമാണ് താലൂക്കിലെ ഓരോ പഞ്ചായത്തിലും പ്രവർത്തിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നത് പൊന്നാനി താലൂക്കിൽ സാധന സാമഗ്രികൾ ആവശ്യമുള്ളവർക്ക് പൊലീസ് പ്രസിദ്ധീകരിച്ച ഈ കടകളുടെ മൊബൈൽ നമ്പറിൽ വിളിച്ച് ഓർഡർ നൽകാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി രുമ സംസ്ഥാനത്ത് മലപ്പുറം ജില്ല തന്നെയാണ് ഇന്നലെയും കോവിഡ് രോഗബാധിതരിൽ മുന്നിൽ

നിറമരുതൂർ തേവർക്കടപ്പുറം താനൂർ ഉണ്ണിയാൽ അഴീക്കൽ പുറത്തൂർ പടിഞ്ഞാറെക്കര അഴിമുഖം മംഗലം കൂട്ടായി നോർത്ത് വെട്ടം വാക്കാട് എന്നിവിടങ്ങളിൽ കടലിൽനിന്നുള്ള മത്സ്യങ്ങൾമാത്രമേ വിൽപ്പനക്ക് എത്തിക്കാവൂ ഇവിടങ്ങളിൽ ചില്ലറ വിൽപ്പന അനുവദിക്കില്ല കോവിഡ് കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ താനൂർ നഗരസഭയിലെ മുഴുവൻ വാർഡുകളും ഹോട്ട് സ്പോട്ടായി പ്രഖ്യാപിച്ചു വില്ലേജ് ഓഫീസ് ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ താനൂർ വില്ലേജ് ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ്

ആദ്യഘട്ടത്തിലെ ഫലം നെഗറ്റീവായത് സമൂഹവ്യാപനം നടന്നിട്ടില്ലെന്നതിന്റെ സൂചനയാണെന്നും ഒരുതരത്തിലും ആശങ്കപ്പെടേതില്ലെന്നും മന്ത്രി ഡോ

ഐ എസ് എഫ് ഉദ്യോഗസ്ഥരായ ആറു പേർക്കും കണ്ണൂർ ഡി

ഒരാൾക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ

ഉത്തരേന്ത്യൻ സ്വദേശികളായ ഇവർ നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞെത്തിയതിന് ശേഷമാണ് രോഗം സ്ഥിരീകരിച്ചത് ദേദ തൃശൂർ ജില്ലയിൽ മൂന്ന് പുതിയ കണ്ടെയ്ൻമെൻറ് സോണുകൾ കൂടി ഏർപ്പെടുത്തി

കണ്ടെയ്ൻമെന്റ് സോണുകളായിരുന്ന ജില്ലയിലെ പട്ടണക്കാട് പത്താം വാർഡ് ആലപ്പുഴ നഗരസഭയിലെ അമ്പതാം വാർഡ് കാർത്തികപ്പള്ളി ഏഴാം വാർഡ് എന്നിവയെ കണ്ടയിന്മെന്റ് സോൺ പട്ടികയിൽ നിന്നും ഒഴിവാക്കി ദേദ കാസർകോട് ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച പത്തു പേരിൽ ആറു പേർ വിദേശത്ത് നിന്നും മൂന്നു പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് ഒരാൾക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ കാസർകോട് ഇന്നലെ മരിച്ച ഉത്തർപ്രദേശ് സ്വദേശിയുടെ സ്രവം പരിശോധനയ്ക്കയച്ചിട്ടുണ്ട് രുമ കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച ആറ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത നടക്കാവ് പേരിൽ സ്വദേശിയും ഉൾപ്പെടുന്നു രുര കൊല്ലം ജില്ലയിലെ ആദ്യത്തെ കൊറോണ പ്രാഥമിക ചികിത്സാകേന്ദ്രം മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ കോവിഡ് ആശുപത്രിയായ കൊല്ലം ഗവ

രുര ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഒരു കോടി എട്ട് ലക്ഷത്തിലേക്ക്

രേര വാഹനാപകടത്തിൽപെടുന്നവർക്ക് പണരഹിത ചികിത്സ നൽകാൻ കേന്ദ്രം പദ്ധതി തയാറാക്കും

ഈ മാസം പത്തിന് മുമ്പ് പദ്ധതി സംബന്ധിച്ച് കാഴ്ചപ്പാടുകൾ അറിയിക്കാൻ മന്ത്രാലയം സംസ്ഥാനങ്ങളിലേയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേയും ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്ക് കത്തയച്ചു

ആധുനിക ബോഗികൾ രാജ്യത്ത് തന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം നിർമ്മിക്കും

ടി സിയിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ ബസ് ഓൺ ഡിമാന്റ് പദ്ധതി സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും നടപ്പാക്കും തിരുവനന്തപുരത്ത് വിജയം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനായി മുന്നൊരുക്കം നടത്താൻ കെ

ടി സി മാനേജിങ് ഡയറക്ടർ ബിജു പ്രഭാകർ യൂണിറ്റ് ഓഫീസർമാർക്ക് നിർദേശം നൽകി

ഇതിൽ രണ്ട് വിമാനങ്ങൾ അമേരിക്കയിൽ നിന്നാണ്

ലണ്ടൻ മാൾട്ട എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടും

രുമ നിയമാനുസൃതമല്ലാത്ത കീടനാശിനികളുടെ വിപണനം തടയാൻ നിലപാട് കർക്കശമായ കൈക്കൊണ്ടിട്ടുണ്ടെന്നും അതിലൂടെ സുരക്ഷിതമായ ഭക്ഷണം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി വി

മൂല്യവർധനയിലൂടെയും കർഷക പങ്കാളിത്തതോടെ സംരംഭകത്വത്തിലൂടെയും മാത്രമേ കൃഷിയിൽ നിന്നും വരുമാനം വർധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ സുഗന്ധവ്യഞ്ജന സംസ്കരണ സംവിധാനവും കീടനാശിനി വിശകലന ലബോറട്ടറിയുടേയും ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രേര വയനാട് ജില്ലയിലെ പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിനായി രാഹുൽ ഗാന്ധി എം

ബത്തേരി വൈത്തിരി മാനന്തവാടി താലൂക്കുകളിലെ തിരഞ്ഞെടുത്ത ക്ലബ്ബുകൾ വായനശാലകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് ടി

ജലവിഭവ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത് ഒരു പ്രദേശത്തെ ജലലഭ്യത നിലവിലെ ഉപയോഗം എന്നിവ കണ്ടെത്തി വിവേക പൂർവ്വമായ ജലവിനിയോഗം ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം